ആലപ്പുഴ മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലിരിക്കെ മരിച്ച യുവാവിനാണ് കോവിഡ് സ്ഥിരീകരിച്ചത്

ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ട്

വൻഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് അധികാരമേറ്റത് രേര കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക രംഗ പുനരുജ്ജീവനത്തിന് ഇന്ത്യ ലോകത്തിന് തന്നെ മാതൃകയാവുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഐക്യത്തോടും നിശ്ചയദാർഢ്യത്തോടും കൊറോണ വൈറസിനെതിരെ പോരാടി ലോകത്തെ ആശ്ചര്യപ്പെടുത്തിയവരാണ് നമ്മളെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു

രണ്ടാം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ജനങ്ങൾക്ക് നൽകിയ കത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത് ഇത്രയും വലിയ മഹാമാരിയുടെ കാലത്ത് പ്രയാസമനുഭവിക്കുന്ന തൊഴിലാളികൾ കുടിയേറ്റ തൊഴിലാളികൾ ചെറുകിട വ്യവസായ മേഖലകളിൽ ജോലിയെടുക്കുന്ന വൈദഗ്ധ്യം നേടിയ തൊഴിലാളികൾ കരകൌശല വിദഗ്ധർ സാധനങ്ങൾ കൊണ്ടുനടന്ന് വിൽക്കുന്ന ചെറുകിട വ്യാപാരികൾ തുടങ്ങിയവർ വലിയ കഷ്ടപ്പാടിലൂടെയാണ് കടന്നു പോകുന്നത് ഇവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് നിശ്ചയ ദാർഢ്യത്തോടെ കൂട്ടായ പരിശ്രമമാണ് നടത്തുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രുദ രണ്ടാം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ബി

പി ഇന്ന് രാജ്യവ്യാപകമായി എല്ലാ ജില്ലകളിലും വെർച്വൽ റാലികൾ സംഘടിപ്പിക്കും സാമൂഹിക മാധ്യമങ്ങൾ വഴി വൈകീട്ട് നാലിന് പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും

കോവിഡ് നിരീക്ഷണത്തിലിരിക്കെ ആലപ്പുഴ മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ മരിച്ച യുവാവിന് രോഗം സ്ഥിരീകരിക്കുകയായിരുന്നു ചെങ്ങന്നൂർ പാണ്ടനാട് സ്വദേശി ജോസ് ജോയിയാണ് മരിച്ചത്

കരൾ രോഗ ബാധിതനായതിനെതുടർന്ന് ഇന്നലെ രാവിലെയാണ് യുവാവിനെ ആശുപത്രിയിലാക്കിയത് ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ഒമ്പതായി

തിരുവനന്തപുരം പത്തനംതിട്ട മലപ്പുറം ജില്ലകളിലെ അഞ്ചു പേർക്ക് വീതവും എറണാകുളം കാസർകോട് ജില്ലകളിലെ നാലു പേർക്ക് വീതവും കൊല്ലം വയനാട് ജില്ലകളിൽ രണ്ടു പേർക്ക് വീതവും കോട്ടയം ഇടുക്കി കോഴിക്കോട് ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്

രണ്ട് എയർഇന്ത്യ ജീവനക്കാർക്കും രണ്ടു തടവുകാർക്കും ഒരു ആരോഗ്യ പ്രവർത്തനും രോഗം സ്ഥിരീകരിച്ചവരിൽ പെടുന്നു

രുമ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പേർ ചികിത്സയിൽ കഴിയുന്നത് പാലക്കാട് ജില്ലയിലാണ്

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിതാ പ്രതാപ്

ദേദ തിരുവനന്തപുരം ജില്ലയിൽ ചെമ്പഴന്തി മുക്കുടിൽ കളമച്ചൽ കഠിനംകുളം പുല്ലുവിള സ്വദേശികൾക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്

മുംബൈയിൽ നിന്ന് എത്തി ഹോം ക്വാറന്റയിനിൽ കഴിഞ്ഞിരുന്ന അയർക്കുന്നം സ്വദേശിയായ പെൺകുട്ടിക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്

രുമ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ബുധനാഴ്ച ബഹ്റൈനിൽ നിന്നു കരിപ്പൂരിലെത്തി രോഗ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വടകര ചോറോട് സ്വദേശിക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്

ദരര പനി പ്രധാന ലക്ഷണമായ രോഗങ്ങളുടെ പട്ടികയിൽ കോവിഡ് കൂടി ഉൾപ്പെടുത്തി ഫീവർ പ്രോട്ടോക്കൊൾ പുതുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പനിയുമായി ആശുപത്രിയിലെത്തുന്നവരെ പ്രത്യേകമായി ഇരുത്തുകയും ആശുപത്രി പ്രവേശന കവാടത്തിൽ വെച്ചുതന്നെ വേർതിരിക്കുകയും ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു റേഷൻ വാങ്ങുമ്പോൾ ഇ പോസ് മെഷീനിലെ പഞ്ചിങ് ഒഴിവാക്കിയതായും മുഖ്യമന്ത്രി പറഞ്ഞു

തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടായിരിക്കും രുഭ കാലിക്കറ്റ് സർവകലാശാല കോവിഡ് മൂലം മാറ്റിവെച്ച പരീക്ഷകൾ ജൂൺ രണ്ടിന് ആരംഭിക്കും കൊവിഡ് പശ്ചാത്തലത്തിൽ കർശന നിബന്ധനകളോടെയാണ് പരീക്ഷ നടത്തുകയെന്ന് സർവകലാശാല അറിയിച്ചു

കൊറോണ വൈറസ് കൈകാര്യം ചെയ്ത രീതിയിൽ പ്രതിഷേധിച്ചാണ് ബന്ധം വിച്ഛേദിക്കുന്നതെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു ലോകത്ത് കൊറോണാ വൈറസ് വ്യാപനത്തിനും മരണത്തിനും ചൈനയും ലോകാരോഗ്യ സംഘടനയുമാണ് ഉത്തരവാദിയെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി വൈറസിനെ കുറിച്ച് ചൈന ലോകത്തിന് മറുപടി നൽകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു